കിസാൻ സൂര്യോദയ പദ്ധതി കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ വിവിധ ്വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു

ഇന്ന് മഹാനവമി രാഷ്ട്രപതി ഉപ്പ്ര്യൂഷ്ടപതി പ്രധാനമന്ത്രി തുടങ്ങിയവർ രാജ്യത്തെ ജന്റങ്ങൾക്ക് ആശംസകൾ നേർന്നു

കോവിഡ് മഹാമാരിയെ നിയന്ത്രിക്കുന്നതിൽ അടുത്ത മൂന്നു മാസം നിർണായകം എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ

ഐപിഎല്ലിൽ ഇന്ന് കൊൽക്കത്ത ഡൽഹിയേയും പഞ്ചാബ് ഹൈദരാബാദിനേയും നേരിടും

ഗുജറാത്തിൽ കർഷകർക്കുള്ള കിസാൻ സൂര്യോദയ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കജശ യായിരുന്നു അദ്ദേഹം കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുക യാണ് കിസാൻ സൂര്യോദയയുടെ അടിസ്ഥാന ലക്ഷ്യം കർഷകർക്ക് അവരുടെ ഉൽപന്നങ്ങൾ സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക ജലസേചന പദ്ധതികൾ മികച്ച രീതിയിൽ പൂർത്തീകരിക്കുക തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുപ്പു അന്നദാതാക്കളായ കർഷകരെ ഊർജ്ജദാതാവ് കൂടി ആക്ട്രീ മാറ്റാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് ആരംഭിച്ചു കഴിഞ്ഞു ഇതിനായി വിളയിടങ്ങളിൽ സോളാർ പ്താന്റുകൾ സ്ഥാപിക്കാനുള്ള സൃഷായ്പ്പും നൽകിവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു സ്ത്രീകളെ ആദരിക്കുക എന്ന ഭാരതീയ സന്ദേശം വിളിച്ചോതുന്ന ഉത്സവ വേളയിൽ മാതൃശക്തിയെ ബഹുമാനിക്കാനും ശാക്തീകരിക്കാനും ഉറച്ച തീരുമാനമെടുക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു തിന്മക്കെതിരെ നന്മ നേടിയ വിജയം ആചരിക്കുന്ന ഈ ദിനം സമൂഹത്തിലെ അനാചാരങ്ങളെ തുടച്ചുനീക്കാൻ ജനങ്ങൾ പ്രതിജ്ഞ എടുക്കണമെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു അഭ്യർത്ഥിച്ചു എല്ലാവർക്കും സുഖവും സമൃദ്ധിയും നല്ല ആരോഗ്യവും നൽകാനായി താൻ ദുർഗാദേവിയോട് പ്രാർത്ഥിക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ടിറ്ററിൽ കുറിച്ചു

്റ്റ്റ്റിസ് കോവിഡുമായി ബന്ധുപ്പെട്ട തയ്യാറെടുപ്പുകൾ രോഗപ്രതിരോധ ത്തിനായി സ്വീകരിക്കേണ്ട് നടപടികൾ എന്നിവയെപ്പറ്റി ഉത്തർ പ്രദേശിലെ ഉദ്യോഗ്സ്ഥരുമായി സംവദിക്കുകയായിരുന്നു ആരോഗൃമന്ത്രി വരുന്ന ഉത്സവ ശൈതൃകാലത്ത് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചാൽ കോവിഡിന് എതിരായ പോരാട്ടത്തിൽ മേൽക്കൈ നേടാൻ നമുക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു രോഗപരിശോധന രോഗികളെ തിരിച്ചറിയൽ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കൽ എന്നീ നടപടികൾ തുടരണം ഉത്സവ കാലയളവിൽ ഇതിനു കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമിപ്പിച്ചു മുഖാവരണം ധരിക്കുക കൈകൾ ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുക തുടങ്ങിയ ചെറുതും ഫലപ്രദവുമായ പ്രതിരോധ നടപടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി വിശദീകരിച്ചു കോവിഡ് മഹാമാരി രാജ്യത്തെ വിട്ടു പോയിട്ടില്ലെന്നും മാസ ്കിന്റെ ഉപയോഗം രണ്ട് മീറ്റർ ശാരീരിക അകലം എന്നീ മന്ത്രങ്ങൾ പാലിക്കാൻ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ കോവിഡിനെ ഫലപ്രദമായി ചെറുക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായും അദ്ദേഹം വിലയിരുത്തി

ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത് എറണാകുളം ജില്ലയിലാണ്

ഏറ്റവുട്ട് കൂടുതൽ പേർ കോവിഡ് ബാധിച്ചു മരിച്ചതും തലസ്ഥാന ജീല്ലയിലാണ്

കോവിഡ് പശ്ചാത്തലത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾക്ക് ഇത്തവണ പതിവിലും ചൂടേറിയിട്ടുണ്ട്

ജെ

തുടങ്ങിയ മുഖ്യ പാർട്ടികളെല്ലാം സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം ഊർജിതമാക്കി കഴിഞ്ഞു കോവിഡ് കാലത്ത് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കേണ്ടതുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ ഫേസ് ബുക് യൂട്യൂബ് ട്ടിറ്റർ എന്നിവയിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഇതിനു പുറമെ വാട്ട്സാപ്പ് ഗ്രുപ്പുകൾ കേന്ദ്രീകരിച്ചും തിരക്കിട്ട പ്രചാരണം ആണ് നടക്കുന്നത്

ജെ ഡി

സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മൃത ദേഹത്തിന്റെ മുഖം വരുന്ന ഭാഗത്ത കവറിന്റെ സിബ് തുറന്ന് മുഖം അടുത്ത ബന്ധുക്കൾ കാണാനുള്ള അവസരമാണ് നൽകുന്നത്

എൻ ചാർട്ടർ പ്രാബല്യത്തിൽ വന്നതിന്റെ സ്മരണാർത്ഥമാണ് ഐക്യരാഷ്ട്ര സഭാ ദിനം ആചരിക്കുന്നത്

എഫ് എ ടി എഫ് അധ്യക്ഷൻ മാർക്കസ് പ്ലെയറാണ് ഇക്കാര്യം അറിയിച്ചത്

തങ്ങൾ മുന്നോട്ട് വെച്ച കർമ്മ പദ്ധതി കൃഷ്ട്ട് ഫെബ്രുവരിക്കുള്ളിൽ പൂർണമായും പൂർത്തീകരിക്കണമെന്ന് സംഘടന പാക്കിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു